ശ്രീലങ്കയെ ഒമ്പത് വിക്കറ്റിന് തകർത്തു

ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ബ്രസീൽ പ്രസിഡന്റ് ജയ്ർ ബോൾസനാരോ എന്നിവരുമായി രാവിലെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും തുടർന്ന് വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയിലും ശ്രീ

മാനവ കേന്ദ്രീകൃത ഭാവി സമൂഹം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം സുസ്ഥിര വികസനം അസമത്വം ഉൾച്ചേർന്ന വികസനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും കാലാവസ്ഥാ വൃതിയാനം പരിസ്ഥിതി ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളിൽ തുടർന്നുള്ള സമ്മേളനങ്ങളിൽ സംവാദം സംഘടിപ്പിക്കുമെന്ന് ആകാശവാണി ലേഖക്യൻ റിപ്പോർട്ട് ചെയ്യുന്നു

മാനവരാശിക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് ഭീകരവാദമെന്ന് ശ്രീ

ആഗോള തലത്തിലുള്ള വിഷയങ്ങളിൻ മേലുള്ള ചർച്ചയും ഏകോപനവുമായിരുന്നു മൂന്നു രാജ്യനേതാക്കളുടെയും യോഗത്തിലെ പ്രധാന അജണ്ട എല്ലാവർക്കും തുല്യവളർച്ച ഉറപ്പുവരുത്തുന്നതിനായി ലോക വ്യാപാര സംഘടനയിൽ പരിഷ്ക്കാരങ്ങൾ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയതായി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോയൽ പറഞ്ഞു ഇന്തോ ജർമ്മൻ സഹകരണത്തിന്റെ ഭാഗമായി സൈബർ സുരക്ഷ ഇ മൊബിലിറ്റി നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ജർമ്മൻ ചാൻസലർ ആഞ്ജല മെർക്കലുമായും ശ്രീ മോദി ചർച്ച നടത്തി

വിശദാംശങ്ങളുമായി തുളസീദാസ്

ഓരോ മന്ത്രാലയവും അഞ്ച് വർഷത്തെ വികസന കാഴ്ചപ്പാട് ലക്ഷ്യമാക്കി പദ്ധതി രൂപരേഖ തയ്യാറാക്കണമെന്ന പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ തുടർന്നാണ് നടപടി

ഗുണമേന്മ വർദ്ധിപ്പിക്കൽ തൊഴിൽ ലഭ്യമാക്കൽ സംരംഭകത്വം ഉന്നത വിദ്യാഭ്യാസത്തിന് ഫണ്ട് സമാഹരണം ഭരണനിർവ്വഹണ പരിഷ്ക്കാരം തൂട്ടങ്ങി വിവിധ മേഖലകളുടെ നവീകരണത്തിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് മൂത്പിർന്ന പണ്ഡിതന്മാർ ഭരണനിർവ്വഹണ വിദഗ്ദ്ധർ വ്യവസായ പ്രമൂഖർതുടങ്ങിയവർ ഉൾപ്പെട്ട വിദഗ്ദ്ധസംഘം നൽകുന്ന നിർദ്ദേശത്തിലൂട്ടി ഉന്നതവിദ്യാഭ്യാസ മേഖലയുടെ സമ്പൂർണ്ണ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്ത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിന്റെ ഭാഗമായി നൈപുണ്യ വികസന പരിശീലനം സ്കോളർഷിപ്പ് സാമ്പത്തിക സഹായം എന്നിവയ്ക്ക് ഗവൺമെന്റ് ഊന്നൽ നൽകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു രാജ്യസഭയിൽ മനോജ് ത്സാ ഉന്നയിച്ച പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി

ഭൂചലന സമയത്ത് സ്വീകരിക്കേണ്ട നടപടികൾ പരിശീലിപ്പിക്കാനും അതിതീവ്ര ഭൂചലന സമയത്ത് സംസ്ഥാന ഗവൺമെൻ്റുകൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മനസ്സിലാക്കാനുമായിരുന്നു പരിപാടി ഡൽഹി ഡിവിഷണൽ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ എന്നിവരെ ഇതു സംബന്ധിച്ച വിവരങ്ങൾ ധരിപ്പിച്ചു

അനധികൃത ഗുണഭോക്താക്കൾ വായ്പ നൽക്വിയിരിലെ ക്രമക്കേട് സാമ്പത്തിക തിരിമറി തുടങ്ങിയ കുറ്റങ്ങൾ ചുമുത്തിയാണ് കേസ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഇടങ്ങളിൽ നടന്ന പ്രിൽട്ട്ടോധ്നയിൽ ലാപ്ടോപ്പും സുപ്രധാന രേഖകളും പിടിച്ചെടുത്തു ബ്ജുകിന്റും ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉയർന്ന കുറ്റാരോപണങ്ങളെ തുടർന്നീറ്റണ് സംഘം മിന്നൽ പരിശോധന നടത്തിയത്

കേസിൽ അന്വേഷ്ണർ നടന്നു വരികയാണ്

ചന്ദ്രശേഖര റാവു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ

കൃഷ്ണ നദിയിൽ ആരംഭിച്ച ശ്രീശൈലം പദ്ധതിയിലേക്ക് ഗോദാവരി നദീജലം തിരിച്ചുവിടാനും ധാരണയായി ഇതിനായുള്ള പദ്ധതി രൂപരേഖ തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്

രണ്ട് തെലുങ്കു സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും വെള്ളം എത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ ഇരു മുഖ്യമന്ത്രിമാരും തീരുമാനിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

സമ്പാദ്യ നിക്ഷേപങ്ങളുടെ പലിശനിരക്ക് പ്രതിവർഷം നാല് ശതമാനം എന്നത് നിലനിർത്തിയിട്ടുണ്ട്

ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് മൂന്നു മാസത്തിലൊരിക്കൽ എന്ന അടിസ്ഥാനത്തിൽ പുതുക്കുമെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി

എഫ് എൻ എസ്

എസ് ഡോളർ കൂടി വർദ്ധിച്ച്ച്തോൾടയാണ് നാണ്യശേഖരം ചരിത്ര റെക്കോർഡ് രേഖപ്പെടുത്തിയത് അതേസമയം ഇന്ത്യയുടെ സ്വർണ്ണശേഖരത്തിൽ മാറ്റമില്ലു

എസ് ഡോളറായാണ് വർദ്ധിച്ചത്

ലുവലാബ പ്രവിശ്യ ഗവർണർ റിച്ചാർഡ് മുയേജ് മാധ്യമങ്ങളെ അറിയിച്ചതാണിക്കാര്യം സ്വിസ് കമ്പനിയായ ഗ്ലെൻകോറിന്റെ നേതൃത്വത്തിലുള്ള കമോറ്റോ കോപ്പർ കമ്പനിയുടേതാണ് ഖനികൾ യഥാർത്ഥ മരണസംഖ്യ ഇനിയും അറിവായിട്ടില്ല